നാളെ ഒന്നാം ഓണവും ഉത്രാട്ടപ്പാച്ചിലും കോവിഡ് മഹാമാരിയുടെ പ്പ്രിമിതികൾക്കിടയിലും ഓണാഘോഷത്തിനുള്ള തയ്യാർഗ്ഗറ്റടുപ്പിൽ മലയാളികൾ

സംസ്ഥാനങ്ങൾക്ക് ജിഎസ്ടി വരുമാനത്തിലുണ്ടായ നഷ്ടം നികത്തുന്നതിന് കേന്ദ്ര സർക്കാർ രണ്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ടു വച്ചു ജിഎസ്ടി നഷ്ടപരിഹാരത്തിൽ കേന്ദ്രം വാഗ്ദാന ലംഘനം നടത്തിയെന്ന് ധനമന്ത്രി തോമസ് ഐസക്

കാർഷിക സ്വയം പര്യാപ്തതയിലൂടെ കർഷകനെ ഉത്പാദകനും സംരംഭകനുമാക്കാൻ ലക്ഷ്യമിടുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു

കോവിഡ് മഹാമാരിയുടെ പരിമിതികൾക്കിടയിലും ഓണാഘോഷത്തിനുള്ള തയ്യറെടുപ്പിലാണ് മലയാളികൾ

കോവിഡ് ആശങ്കകൾക്കിടയിലും നാളത്തെ ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും ഓണവിപണിയും സജീവമാകും നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചതോടെ വ്യാപാരികളും പ്രതീക്ഷയിലാണ് നഗരങ്ങളിൽ ചെറിയ തോതിൽ തിരക്ക് ആരംഭിച്ചിട്ടുണ്ട് കോവിഡ് പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് മറുനാടൻ മലയാളികൾ ഓണക്കാലത്ത് നാട്ടിലുണ്ടെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്

ഈ ഓണക്കാലത്ത് മലയാളികൾ കൃതജ്ഞതാപൂർവ്വം ഓർക്കുന്നതും ഈ മുന്നണിപ്പോരാളികളെയാണ്

ആൾക്കൂട്ടം ഒഴിവാക്കാൻ ഊർജ്ജിത്മാ്യ ഇടപെടലിന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകി

തിരുവോണ പൂജകൾക്കുശേഷം അടുത്ത മാസം രണ്ടിന് നട അടയ്ക്കും

തിരുവന്തപുരം ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്

കോവിഡ് പ്രതിരോധത്തിനായി ജില്ലാതലത്തിൽ ക്ര നടപ്പാക്കുന്ന പുതിയ പദ്ധതിയുടെ ന്റെട്പടി

സംസ്ഥാനത്ത് കോവിഡിൽ നിന്ന് മുക്തി ന്യേടിയ ഏറ്റവും പ്രായംകൂടിയ വ്യക്തിയാണ് ഇവർ

യോഗത്തിൽ ആരോഗ്യമന്ത്രി ഡോ

വിദേശകാര്യ മന്ത്രി എസ് ജയ്ശങ്കർ വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് എന്നിവർ പക്കെടുത്തു

ജി എസ് ടി നടപ്പു സാമ്പത്തിക വർഷം സംസ്ഥാനങ്ങൾക്ക് ജി എസ് ടി വരുമാനത്തിലുണ്ടായ നഷ്ടം നികത്തുന്നതിന് വായ്പയെടുക്കുന്നതിനുള്ള രണ്ട് നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചു

ഇക്കാര്യത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയും സംസ്ഥാന ധനകാര്യ സെക്രട്ടറിമാരും ചൊവ്വാഴ്ച യോഗം ചേരും

തുടർച്ചയായി ആറു ദിവസം അവധിയായതോടെയാണ് താത്കാലിക രജിസ്ട്രേഷൻ അപേക്ഷകളിൽ ഉദ്യോഗസ്ഥർ വീട്ടിലിരുന്നോ ഓഫീസിലെത്തിയോ ഉടൻ തീരുമാനമെടുക്കാൻ നിർദേശം നൽകിയത്

സി കോവിഡ് യാത്രാ നിയന്ത്രണത്തിൽ സർക്കാർ ഇളവ് വരുത്തിയതോടെ കെ എസ് ആർ ടി സി

സംസ്ഥാനത്തിനുള്ളിൽ രാത്രി പത്തുവരെ ദീർഘദൂര ബസുകൾ ഓടിക്കാനാണ് അനുമതി തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽനിന്നു ബെംഗളൂരുവിലേക്ക് സർവീസ് ആരംഭിച്ചു മിൽമ ഓണത്തിന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പാലിന്റെ ഗുണ നിലവാരം ഉറപ്പാക്കാൻ വാളയാറിൽ താൽക്കാലിക പാൽ പരിശോധന കേന്ദ്രം ആരംഭിച്ചു അതിർത്തി കടന്നെത്തുന്ന ടാങ്കറുകളിൽ നിന്നും പാക്കറ്റ് പാലുകളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു ലാബിൽ പരിശോധിക്കും ഗുണമേന്മ കുറഞ്ഞതോ മായം കലർന്നതോ ആയ പാൽ കണ്ടെത്തിയാൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിനെ അറിയിക്കും

കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കുമെന്ന് റിപോർട്ടുണ്ട്

ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ച പ്ലാന്റ് ദക്ഷിണനാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ എ

ചൌള ഉദ്ഘാടനം ചെയ്തു

ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ

എസ് രാജേന്ദ്രൻ എം എൽ എ യുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽവൈദുതി മന്ത്രി എം എം മണി വിതരണോദ്ഘാടനം നിർവ്വഹിച്ചു

ദേശീയ കായിക പുരസ്കാരം നേടിയ പ്രതിഭകൾക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഓൺലൈൻ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു

പരീക്ഷ മാറ്റിവയ്ക്കണമെന്ന വിദ്യാർത്ഥികളുടെ ഹർജി തള്ളിയ കോടതിവിധിക്കെതിരെയാണ് ബംഗാൾക്ട് മീറ്റ്ഗാരാഷ്ട്ര രാജസ്ഥാൻ പഞ്ചാബ് ചത്തീസ്ഗഢ് ജാർഖങ്ങൾ ് എന്നീ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ സുപ്രീംകോടതിയെ ിസ്റ്റമീപിച്ചത് അടുത്തമാസം ഒന്ന് മുതൽ ആറ് വരെ ജെ ഇ

എട്ട് കോടി ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് നേരിട്ട് പണം കൈമാറിയത് ബാങ്കിങ് സേവനം സാർവത്രികമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ആറുവർഷം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കമിട്ടത്

പാർട്ടി സ്ഥാപകൻ എം

പി ഡി എസ് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതിയുടെ പുരോഗതി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള യോഗം അവലോകനം ചെയ്തു ഏകീകൃത ഭക്ഷ്യ പൊതുവിതരണ സമ്പ്രദായത്തിന്റെ വിപുലീകരണവും യോഗത്തിൽ ചർച്ചയായി